സംസ്ഥാനത്ത് മഴയ്ക്ക് താത്ക്കാലിക ശമനം

പി എസ് സി റാങ്ക്ലിസ്റ്റ് അതിവേഗമാണ് പ്രസിദ്ധീകരിക്കുന്നത് എന്നാൽ ഇല്ലാക്കഥ കൾ പ്രചരിപ്പിച്ച് പി എസ് സി യെക്കുറിച്ച് യുവജനങ്ങളിൽ അങ്കലാപ്പ് സൃഷ്ടിക്കുകയാണ് ചിലരെന്ന് മുഖ്യമന്ത്രി തിരുവ നന്തപുരത്ത് പറഞ്ഞു ഇതരസംസ്ഥാനങ്ങൾക്കാകെ മാതൃ കയാണ് കേരളത്തിലെ പി എസ് സി

എന്നാൽ മറ്റിടങ്ങളിൽ അങ്ങനെയല്ല അതുകൊണ്ട് പി എസ് സിയുടെ വിശ്ചാസൃത ഗവൺമെന്റ് കാത്തുസൂക്ഷിക്കു മെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ സംസ്ഥാനത്ത് തീവ്രയജ്ഞ പദ്ധതി നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

സംസ്ഥാനത്ത് മഴയ്ക്ക് താത്ക്കാലിക ശമനമായി വടക്കൻ കേരളത്തിലടക്കം ഇന്നു മുതൽ തെക്കുപടിഞ്ഞാറൻ കാല വർഷത്തിന്റെ ശക്തി കുറഞ്ഞു തുടങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണകേന്ദ്രം അറി യിച്ചു വിവിധ ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന റെഡ് ഓറഞ്ച് അലർട്ടുകൾ പിൻവലിച്ചു

പരിക്കേറ്റ എം എൽ എ എൽദോ എബ്രഹാമിൽ നിന്ന് രാവിലെ കലക്ടർ മൊഴിയെടു ത്തു ഇന്നലെ ഞാറയ്ക്കൽ ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യണമെന്നാ വശ്യപ്പെട്ട് നടത്തിയ റാലിക്കുനേരെയാണ് പൊലീസ് നടപടി യുണ്ടായത്

ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് സംഭവിച്ചതെന്ന് അദ്ദേഹം അഭി പ്രായപ്പെട്ടു ഇതിൽ പാർട്ടിയ്ക്കും വേദനയുണ്ട് കലക്ടറുടെ റിപ്പോർട്ട് ലഭിച്ചശേഷം ഇക്കാര്യത്തിൽ ഗവൺമെന്റ് ഉചിത മായ നടപടിയെടുക്കും സി പി ഐ യുമായി നിലനിൽക്കുന്ന തർക്കങ്ങൾ പരിഹരിക്കാനും വേണ്ടതു ചെയ്യുമെന്ന് കോടി യേരി അറിയിച്ചു

സ്വന്തം എം എൽ എയുടെ കൈ തല്ലിയൊടിച്ചിട്ടും മുന്ന ണിയിൽ തുടരുന്നത് സി പി ഐ യുടെ ഗതികേടുകൊണ്ടാ ണെന്ന് ചെന്നിത്തല തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോടു പറ ഞ്ഞു കാനത്തിന്റെ നിലപാട് അപഹാസൃമാണെന്നും െപ്രതി പക്ഷനേതാവ് വിലയിരുത്തി

രാവിലെ ആറ് മുതൽ ഉച്ചവരെയായിരിക്കും ഉപരോധമെന്ന് മുന്നണി കൺവീനർ ബെന്നി ബെഹ്നാൻ അറിയിച്ചു യൂണി വേഴ്സിറ്റി കോളജിലെ അക്രമവും ക്രമക്കേടും സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണവും പി എസ് സി പരീക്ഷാത്തട്ടിപ്പ് സി ബി ഐ അന്വേഷണവും ആവശ്യപ്പെട്ടാണ് ഉപരോധം ന്യൂട്ടു ജനറേഷൻ ബാങ്കുകൾ ജനങ്ങളെ കൊള്ളയടിക്കയാണെന്നും കേരളത്തിലെ സഹകരണപ്രസ്ഥാനം രാജൃത്തിന് മാതൃകയാ ണെന്നും സ് പീക്കർ പി ശ്രീരാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു

കെയർ ഹോം പദ്ധതിയിൽ ബാങ്ക്

താക്കോൽ കൈമാറ്റവും സ്പീക്കർ നിർവഹിച്ചു

ഉത്തരേന്തൃയിലേതുപോലെ ആൾക്കൂട്ട ആക്രമണം സ്ത്രീകൾക്കുനേരെ ഉണ്ടാകുന്നത് സാംസ്കാരിക പുരോഗതി നേടിയ കേരളത്തിന് ഭൂഷണമല്ലെന്ന് മന്ത്രി തിരു വനന്തപുരത്ത് പറഞ്ഞു ഞായറാഴ്ചയുണ്ടായ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇവരെ ആക്രമിച്ച സജീവാനന്ദ് ഒളിവിലാണ് ഇയാൾ ജില്ല വിട്ട് പോയിട്ടില്ലെന്നാണ് പൊലീസിന്റെ നിഗമ നം

ഇതിന്റെ അനൌപചാരിക ചർച്ചകൾ പൂർത്തീകരിച്ച് വൈകാതെ കമ്മിറ്റി രൂപീകരിക്കു മെന്നും മുല്ലപ്പള്ളി തിരു വ ന ന്ത പു രത്ത് പറഞ്ഞു ഇന്ന് നടക്കാനിരുന്ന കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കോറം തികയാത്ത തിനാൽ നാളെത്തേക്ക് മാറ്റി

നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു

ഡൊണാൾഡ് ട്രംപിനോട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഇന്ത്യാ പാക് പ്രശ്നപരിഹാരത്തിന് മധ്യസ്ഥനാകാൻ ആവശ്യപ്പെട്ടെന്ന പരാമർശത്തിൽ വിശദീകരണമാവശ്യപ്പെട്ട് സി പി ഐ എമ്മിലെ എളമരം കരീമാണ് നോട്ടീസ് നൽകിയ ത് കർണാടകയിൽ ബി ജെ പി ഗവൺമെന്റ് രൂപീകരണത്തിന് ശ്രമം തുടങ്ങി ഇന്ന് നിയമസഭാകക്ഷി യോഗത്തിനുശേഷം ഗവൺമെന്റ് രൂപീകരണത്തിന് ബി ജെ പി ഗവർണറെ കണ്ട് അവകാശം ഉന്നയിച്ചേക്കും ബി എസ് യെദ്യൂരപ്പയുടെ നേതൃ ത്വത്തിൽ ഇന്നോ നാളെയോ മന്ത്രിസഭ രൂപീകരിച്ചേക്കുമെ ന്നാണ് ബെങ്കളൂരു റിപ്പോർട്ടുകൾ വിശ്വാസ വോട്ടെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് മുഖ്യ മന്ത്രി എച്ച് ഡി കുമാരസാമി ഇന്നലെ രാജിവെച്ചിരുന്നു

സെപ്റ്റംബർ അഞ്ചിന് ആദ്യ കളിയിൽ ഗോഹട്ടിയിൽ ഇന്ത്യ ഒമാനെ നേരി ടും

വെസ്റ്റ്ഡീസിലെ ആന്റിഗ്വയിൽ ഇന്ത്യ എ ടീമിന്റെ ക്രിക്കറ്റ് ടെസ്റ്റ് മത്സരത്തിന് ഇന്ന് തുടക്കമാകും അടുത്തമാസത്തെ രണ്ട് ടെസ്റ്റുകളടങ്ങിയ പരമ്പരയുടെ ഒരുക്കമെന്ന നിലയിലാണ് ഇന്ത്യൻ ജൂനിയർ താരങ്ങളുടെ സംഘം വിൻഡീസിന്റെ എ ടീമിനെതിരെ കളിക്കുന്നത്

പ്രതികൂല കാലാവസ്ഥ കാരണമാണ് എക്സ്പോ മാറ്റിയത് ക്ഷീരമേഖലയിൽ വനിതകളുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് ക്ഷീര വികസന വകുപ്പ് വനിതാ ക്ഷീര കർഷക സർവെ സംഘടിപ്പിക്കും സർവെയുടെ ലോഗോ പ്രകാശനം തിരുവനന്തപുരത്ത് മന്ത്രി കെ രാജു നിർവഹിച്ചു ക്ഷീരമേ ഖല ശക്തിയാർജ്ജിക്കുന്നുവെന്നും പാൽ ഉല്പാദനത്തിലും കന്നുകാലികളുടെ എണ്ണത്തിലും വർദ്ധനയുണ്ടെന്നും മന്ത്രി പറ ഞ്ഞു

കേസ് കെട്ടിച്ചമച്ചതാണെന്നും എഫ് ഐ ആർ റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ബിനോയ് കോടതിയെ സമീപിച്ചത്

ഹൈക്കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് ഡി എൻ എ പരിശോധനയ്ക്ക് ബിനോയ് കോടിയേരി ഇതുവരെ രക്ത സാമ്പിൾ നൽകിയിട്ടില്ല പാലക്കാട് പേഴുങ്കര വടക്കേ പറമ്പിൽ സ്കൂൾ ബസ്സ് വയലിലേക്ക് മറിഞ്ഞു മേപ്പറമ്പ് ബി ഇ എം എൽ പി സ ്കൂളിലെ ബസ്സാണ് മറിഞ്ഞത്

ആരുടെയും പരിക്ക് ഗുരുതരമല്ല പരിക്കേറ്റവരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

മൂന്ന് കോടി രൂപ മോചനദ്രവൃം ആവശ്യ പ്പെട്ട് സ്വർണ്ണക്കടത്തുകാരുടെ കിട്ടേഷൻ സംഘമാണ് തട്ടി ക്കൊണ്ടുപോകലിന് പിന്നിലെന്ന് കരുതുന്നു

സ്വകാര്യ ഏജൻസികളെ തൃപ്തിപ്പെടുത്താനും റെയിൽവേ വരുമാനം കുറയ്ക്കാനും യാത്രക്കാർക്ക് ദുരിതം ഉണ്ടാക്കാനും തീരുമാനം കൊണ്ട് സാധിക്കൂവെന്ന് മാത്രമേ അസോസിയേഷൻ കുറ്റപ്പെടുത്തി ക്രിയേറ്റീവ് ഫോട്ടോഗ്രാഫേഴ്സ് ഫോറത്തിന്റെ വാർഷിക ഫോട്ടോ എക്സിബിഷൻ നാളെ കണ്ണൂരിൽ ആരംഭിക്കും ജില്ലാ ലൈബ്രറി കൌൺസിൽ ഹാളിൽ രാവിലെ ചിത്രകാരൻ കെ

മാരാർ ഉദ്ഘാടനം ചെയ്യും ശനിയാഴച സമാപിക്കും

ഇതുസംബന്ധിച്ച് തുടർനടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു